വാളയാറിൽ പീഡുമുത്തിനിരയായ സഹോദരിമാരെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ് സംഭവം സഭ നിർത്തിവച്ച് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ചർച്ച ആണ് അടിയന്തരപ്രമേയത്തിന് നോട്ടീസ്ക് നൽകിയത് എന്നാൽ ഒരേ വിഷയത്തിൽ വീണ്ടും ൃഢടിയന്തിര പ്രമേയത്തിന് അനുമതി നൽകാനാവില്ലെന്ന് സ്പീക്കർ പറഞ്ഞു

വാളയാർ കേസിലെ അട്ടിമറികൾ പുറത്തുവരുന്ന സാഹചരൃത്തിൽ വിഷയം അതീവ ഗൌരവത്തോടെ ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു ശൂന്യവേളയിൽ വിഷയം ഉന്നയിക്കാമെന്ന് സ്പീക്കർ അറിയിച്ചെങ്കിലും അടിയന്തിര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നൽകാത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു

ഐ അന്വേഷിക്കണമെന്നും അന്വേഷണം അട്ടിമറിച്ചവരെ പ്രോസിക്യൂട് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് യു ഡി